നയ്പ്പ്ഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ ആരംഭിച്ചു രാജ്യസഭയിൽ ചർച്ച് അൽപ്പസമയത്തിനകം

കൊളംബിയയും അർജന്റീനയും കോപ്പ അമേരിക്ക ഫുട്ബോൾ ക്വാർട്ടറിൽ

രോഗബാധ നിയന്ത്രിക്കുന്നതിനും ചികിൽസ ക്രമീകരണങ്ങളെ കുറിച്ചും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റീസ് സഞ്ജീവ് ഖന്നയും ബി ആർ ഗവായിയും ഉൾപ്പെട്ട ബഞ്ച് സംസ്ഥാന ഗവൺമെന്റിന് നിർദ്ദേശം നൽകി ഉത്തർപ്രദേശിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേസ് പരിഗണിക്കവെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപെടുത്തി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകാൻ കോടതി ഉത്തർപ്രദേശ് ഗവൺമെന്റിനും നോട്ടീസ് അയച്ചു

ജെ പി യുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് ജെ

നഡ്ഡ രാജ്യസഭയിലും കേന്ദ്രമന്ത്രി പ്രതാപ് ചന്ദ്ര സാരാംഗി ലോക്സഭയിലും ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും

ആധാറും അനുബന്ധ നിയമങ്ങളും ഭേദഗതി ബില്ലും ഇന്ന് ചർച്ചയ്ക്കെടുക്കാനാണ് സാധ്യത

കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളായി ഇന്ത്യയിലെ വാർഷിക താപനില വർദ്ധിച്ചിരിക്കുകയാണ് പ്രധാന വിളകളെല്ലാം തന്നെ കാലാവസ്ഥ വൃതിയാനത്തെ തൂടർന്ന് ഉൽപാദനം കുറഞ്ഞ റിസ്ക് പ്രോൺ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നെല്ല് ഗോതമ്പ് തുടങ്ങി ഗംഗാതടത്തോട് ചേർന്നുള്ള ചോളം ഉരുളക്കിഴങ്ങ് മുതലായ വിളകൾ പശ്ചിമബംഗാളിലും ദക്ഷിണ പ്രവിശ്യയിലും ഉൽപാദനം കുറഞ്ഞിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു

എയർ ചീഫ് മാർഷൽ ബി

സർവ്വീസിൽ ഉള്ളവരും വിരമിച്ചവരുമായ കാർഗിൽ യുദ്ധവീരൻമാർ ചടങ്ങിൽ പങ്കെടുക്കും

വൽത്തോറാം സബ്ഡിവിഷനിലെ ജസോൾ ഗ്രാമത്തിൽ മതപരമായ ചടങ്ങിനിടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് പന്തൽ തകർന്നുവീണത്

പരിക്കേറ്റ നാൽപതോളം പേർ ബലോത്ര ആശുപത്രിയിൽ ചികിൽസയിലാണ് പ്പത്ത് പേരെ ജോധ്പൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മരിച്ചവരുടെ കുടുംബത്തിന്റ് ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷ് രൂപ്പ വീതവും സഹായധനം സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു

എട്ട് പർവ്വതാരോഹകരെ കാണാതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തിയത്

മലകയറ്റത്തിനുള്ള ചില ഉപകരണങ്ങളും ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തി

ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം അവതരിപ്പിച്ചു

സംഭവത്തിൽ ഉത്തരവാദിയായ നഗരസഭ അധ്യക്ഷ പി

ശ്യാമളയ്ക്ക് എതിരെ ആത്മഹത്യ പ്രേരണാകുറ്റത്തിന് കേസെടുക്കണമെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ ശ്രീ കെ

കെട്ടിട നിർമാണത്തിന് അനുമതി കൊടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരുടെ അധികാരത്തിൽ കുറവ് വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകി കുറ്റക്കാർക്ക് എതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആന്തൂർ നഗരസഭാധ്യക്ഷയെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

വൈകുന്നേരം സതാംപ്റ്റണിൽ നൂട്ടക്കുന്ന് മത്സരം ഇരു ടീമുകൾക്കും നിർണായകമാണ്

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

സ്ഥാനക്കാരായ ബംഗ്ലാദേശിനെ നേരിടുക ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ച വച്ച ബംഗ്ലാദേശിന് സെമിഫൈനലിൽ എത്താൻ ഇനിയുള്ള എല്ലാം മത്സരങ്ങളും ജയിച്ചേ തീരു വെസ്റ്റിൻഡീസ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരെയുള്ള മികച്ച ബാറ്റിംഗ് പ്രകടനം ബംഗ്ലാദേശിന് മുതൽക്കൂട്ടായുണ്ട്

ഒൻപതും പത്തും സ്ഥാനങ്ങളുള്ള ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി

പരാഗ്വെയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഗ്രൂപ്പ് ബി യിൽ കൊളംബിയ മുന്നിലെത്തി

കൊളംബിയയാണ് ഗ്രൂപ്പ് ചാമ്പ്യൻമാർ മറ്റൊരു മത്സരത്തിൽ അർജന്റീന എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഖത്തറിനെ പരാജയപ്പെടുത്തി

നാളെ ചിലെ ഉറുഗ്വ യെയും ഇക്വഡോർ ജപ്പാനെയും നേരിടും

എന്നാൽ സുനാമി ഭീഷണി ഇല്ലെന്ന് യു എസ് ജിയോള്ജിക്കൽ സർവ്വേയും പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രവും അറിയിച്ചു

പഞ്ചാബിലെ ദേശീയ ദുരന്തനിവാരണ സേനയുടെ ഏഴാം ബെറ്റാലിയനാണ് ക്ഷേത്രത്തിലേക്ക് സേനയെ സജ്ജമാക്കാൻ പരിശീലനം നൽകുന്നത്

ലോക്സഭയിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചതാണിത്

പ്രധാൻ കൂട്ടിച്ചേർത്തു

എൻ മിഷൻ തെരഞ്ഞെടുത്തു